രാജ്യത്ത് ഒൻപത് ലക്ഷത്തിലധികം പേർ ഇതുവരെ ന് കോവിഡ് മുക്തി നേടി

നിന്നും അഞ്ച് റാഫേൽ യുദ്ധവിമാനങ്ങൾ നാളെ ഇന്ത്യയിലെത്തും

രാജ്യത്തെ മരണ നിരക്ക് മറ്റുപല വലിയ രാജ്യങ്ങളെക്കാളും താഴ്ന്ന നിലയിലാണെന്ന് പ്രധാന്മന്ത്രി പറഞ്ഞു

കോവിഡ് പോരാളികളുടെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ലോകം നമ്മെ പ്രശംസിക്കുന്നത്

ഇന്ത്യക്കാരുടെയും ജീവൻ എല്ലാ രക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു

പുതിയ കോവിഡ് പരിശോധനാ ലാബുകൾ രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കോവിഡ് നിയന്ത്രണത്തിന് കൃത്യമായ നടപടികൾ സ്വീകരിച്ചുവരികയാണ്

ഇന്നലെ മാത്രം അര ലക്ഷത്തോളം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്

ഒരു കോടിയിലേറെ പേർ രോഗമുക്തി നേടി

കോവിഡ് പ്രതിരോധത്തിന് ദീർഘകാല പദ്ധതി രൂപപ്പെടു ത്താനും തീരുമാനിച്ചുണ്ട് അതേസമയം ഗുരുതര സാഹചര്യം നില നിൽക്കുന്ന തിരുവനന്തപുരത്ത് ലോക്ക്ഡൌൺ തുടരും

നേരത്തെ എൻ ഐ എ ശിവശങ്കറിനെ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്തിരുന്നു

ആൻഡ്രോയിഡ് ഫ്രെട്ടണ്ട്കളിൽ ലഭ്യമായ ബിസ് കെയർ ആപ്പിലൂടെ ഐ എസ് ർക്എ ഹാൾമാർക്ക് മുദ്രണം ചെയ്ത ഉൽപ്പന്നങ്ങളുടെ ്ഗുണ്നിലവാരം ഉറപ്പാക്കാനാകും ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങളെക്കുറിച്ചുളള പരാതികളും നൽകൂരു ഇ ബിസ് സംവിധാനത്തിലൂടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും ഉപഭോക്താക്കളുടെ താല്പരൃം സംരക്ഷിക്കുന്നതിനും കേന്ദ്ര സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചതായി ശ്രീ പാസ്വാൻ പറഞ്ഞു

ഹരിയാനയിലെ അംബാല വ്യോമതാവളത്തിലെത്തുന്ന വിമാനങ്ങൾക്ക് വ്യോമസേന മികച്ച വരവേൽപ്പ് നൽകാൻ ഒരുങ്ങിക്കഴിഞ്ഞു

ഫ്രഞ്ച് വ്യോമയാന കമ്പനിയായ ദസ്സോ നിർമ്മിച്ചതാണ് റാഫേൽ വിമാനങ്ങൾ

എ

മഹാരാഷ്ട്രയ്ടിൽ പ്രബി ജെ പി പ്രവർത്തന സമിതിയുടെ വെർചൽ യോഗുത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ദേശസുര ക്ഷയും വിവര സ്വകാര്യതയും മുൻ നിർത്തിയാണ് നിരോധനം

ഫോർച്യൂൺ ഗ്രാഫിക്സ് റീമാ പോളികൊ ഗണപതി എന്റർപ്രൈസ് എന്നീസ്ഥാപനങ്ങൾക്കെതിരെയാണ് കേസ് വിതരണം ചെയ്യാതെ സാധനങ്ങളുടെ പേരിൽ ബില്ലുണ്ടാക്കി നികുതി വെട്ടിപ്പ് നടത്തുകയായിരുന്ന മൂന്നുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്

രാജസ്ഥാൻ ഹൈക്കോടതി വെള്ളിയാഴ്ച പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചതായും മറ്റു വഴികൾ പരിഗണിക്കുന്നതായും സ്പീക്കർക്കുവേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ജസ്റ്റിസ് അരുൺ മിശ്ര അധൃക്ഷനായ ബെഞ്ചിനെ ബോധിപ്പിച്ചു

ദർഭാംഗ മുസഫർപൂർ ഗോപാൽഗഞ്ച് വെസ്റ്റ് ചമ്പാരാൻ തുടങ്ങിയ ജില്ലകളിലാണ് പ്രളയം രൂക്ഷമായത് ഒന്നര ലക്ഷത്തിലേറെ പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി

ഇന്ത്യ ഇത്ത് വിഷയത്തെ ഗൌരവമായി കാണുന്നുവെന്നും പാകിസ്ഥാനില്ല് ന്യൂനപക്ഷ സിക്ക് സമുദായത്തിന് ന്യായം ലഭിക്ക്ണുമെന്നും വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ വൃക്തമാക്കി